തന്ത്രി രാജ കുടുംബാംഗങ്ങളുമായി ഉച്ചക്കു ശേഷം മുഖ്യമന്ത്രി ചർച്ച നടത്തും

ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട് ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയനുകളുമായി ഇന്ന് തിരുവനന്തപുരത്ത് ചർച്ച

കണ്ണൂർ വിമാനത്താവളം മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭുവും ചേർന്ന് ഉദ്ഘാടനം ചെയ്യു മെന്ന് കിയാൽ മാനേജിംഗ് ഡയറക്ടർ ആകാശവാണിയോട് പറഞ്ഞു ൾ ൽ ൾ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന ഗവ

മന്ത്രിമാരായ കട കംപള്ളി സുരേന്ദ്രൻ ഇ ചന്ദ്രശേഖരൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവരും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയിട്ടു യു ഡി എഫ് നേതാക്കളും ബി ജെ പിയിൽ നിന്ന് പാർട്ടി സംസ്ഥാന പ്രസി ഡണ്ട് പി എസ് ശ്രീധരൻ പിള്ള ഒ രാജഗോപാൽ എം എൽ എ എന്നിവരും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേ ന്ദ്രൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഉച്ചകഴിഞ്ഞ് മൂന്നിന് ശബരിമല തന്ത്രിയുമായും പന്തളം രാജ കുടുംബാംഗങ്ങളുമായും മുഖ്യമന്ത്രി ചർച്ച നടത്തും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്ന് തന്ത്രി കണ്ഠരര് രാജീവരര് പന്തളത്ത് ് പറഞ്ഞു ആചാരങ്ങളിൽ വിട്ടുവീഴ്ചയി ല്ലെന്ന് പന്തളം രാജകൊട്ടാര പ്രതിനിധി ശശികുമാര വർമ്മ അറി യിച്ചു ശബരിമല വിധിയിൽ ഗവൺമെന്റ് സാവകാശ ഹർജി നൽകി ല്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു

എന്നാൽ സാവകാശ ഹർജിയുടെ സാധ്യത തള്ളാനാവി ല്ലെന്ന് ദേവസ്വം ബോർഡ് കമ്മീഷണർ സൂചിപ്പിച്ചു

ദേവസ്വം ബോർഡിന്റെ നയപരമായ കാര്യ ങ്ങൾ പറയേണ്ടത് ബോർഡ് ചെയർമാനാണെന്നും കമ്മീഷണർക്ക് അതിന് അധികാരമില്ലെന്നും ചെയർമാൻ വ്യക്തമാക്കി

ഗവൺമെന്റിന്റെ വരുമാനത്തെക്കാൾ ജനങ്ങളുടെ വരുമാ നത്തിൽ കുറവുണ്ടാകും പ്രളയാനന്തര പുനരധിവാസ ജോലി കളെ ഇതു ബാധിക്കുമെന്നും ഡോ തോമസ് ഐസക് സ്വകാര്യ ചാനലിനോട് പറഞ്ഞു ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ചു സുപ്രീംകോ ടതി വിധിക്ക് സ്റ്റേ ഇല്ലെങ്കിലും ഉത്തരവ് അടിയന്തരമായി നടപ്പാ ക്കേണ്ട ബാധ്യത ഗവൺമെന്റിനില്ലെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡണ്ട് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു അടിച്ചമർത്തൽ ഭരണത്തിൽ ജനഹിതമേ വിജയിച്ചിട്ടുള്ളൂവെന്നും അത് കേരള ത്തിനും ബാധകമാണെന്നും അദ്ദേഹം പറഞ്ഞു സ്ത്രീ പ്രവേ ശനം ഉറപ്പാക്കണമെന്ന വിധി അന്തിമ മല്ലെന്നും ശ്രീധരൻപിള്ള തിരുവനന്തപുരത്ത് സ്ഥകാര്യചാനലിനോട് പറഞ്ഞു യു ഡി എഫ് നേരത്തെയെടുത്ത നിലപാടിൽ മാറ്റമില്ലെന്നും യുവതി പ്രവേശനം വേണ്ടെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു അക്രമവും സമാധാനമില്ലാത്ത അന്തരീ ഷവും ഒഴിവാക്കാൻ ഗവ ശ്രമിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം അറിയിച്ചു ശബരിമല കേരളത്തിന്റെ വികാരമാണെന്നും അത് ഉൾക്കൊ ള്ളാൻ ഭരണാധികാരികൾക്ക് സാധിക്കണമെന്നും എ ഐ സി സി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി പറഞ്ഞു വിശ്ചാസം സംര ക്ഷിക്കുക വർഗ്ഗീയതയെ തൂത്തെറിയുക എന്ന മുദ്രാവാക്യമു യർത്തി ഷാനിമോൾ ഉസ്മാൻ നയിക്കുന്ന കെ പി സി സി ജാഥ യുടെ എറണാകുളം ജില്ലയിലെ സമാപന സമ്മേളനം തൃപ്പൂണി ത്തുറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

വൈകുന്നേരം അഞ്ചിന് മണ്ഡലകാല തീർത്ഥാട നത്തിന് തുടക്കം കുറിച്ച് മേൽശാന്തി ഉണ്ണി കൃഷ്ണൻ നമ്പൂതിരി നട തുറക്കും പുതിയ ശബരിമല മാളിക പ്പുറം പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണം തന്ത്രി കണ്ഠ രര് രാജീവരരുടെ കാർമ്മികത്വത്തിൽ രാത്രി സന്നിധാനത്ത് നട ക്കും വൃശ്ചിക പുലരിയിൽ മറ്റന്നാൾ പുലർച്ചെ പുതിയ മേൽശാ ന്തിയാണ് നട തുറക്കുക

മണ്ഡല മഹോത്സവത്തിന് മുന്നോടിയായി നാളെ നടതുറ ക്കാനിരിക്കെ ശബരിമലയിൽ പൊലീസ് വിന്യാസം തുടങ്ങി

സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ഇന്ന് നിലയ്ക്കലിലെത്തും വനിതാ പൊലീസ് സംഘത്തെ പമ്പയിലെത്തിച്ചു വനംവകുപ്പ് നിലയ്ക്ക ലിൽ പ്രത്യേക ചെക്ക്പോസ്റ്റും സ്ഥാപിച്ചു ശബരിമലയിൽ ഹൈന്ദവ വിശ്വാസികൾക്ക് മാത്രം പ്രവേശ നാനുമതി നൽകണമെന്നാവശ്യപ്പെടുന്ന ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി

ശബരിമലയിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് പാസ് ഏർപ്പെടുത്തിയ നടപടി ചോദ്യം ചെയ്ത് വാഹന ഉടമകൾ നൽകിയ ഹർജി നാളെ പരിഗണിക്കും പാസു കൾ ഓൺലൈനായി ലഭ്യമാക്കണമെന്ന ഹർജിയും ഇതോടൊപ്പം പരിഗണിക്കാൻ മാറ്റി യുവമോർച്ചാ സംസ്ഥാന സമിതിയിലെ പ്രസംഗത്തിന്റെ പേരിലെടുത്ത കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പി എസ് ശ്രീധരൻപിള്ള സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കേസ് പിൻവലിക്കുന്നതിനെതിരെ ഗവൺമെന്റ് നിലപാട് അറിയിച്ചിട്ടുണ്ട് മറ്റന്നാൾ ശബരിമല ദർശനത്തിന് എത്തുമെന്നറിയിച്ച ഭൂമാതാ ബ്രിഗേഡ് നേതാവ് തൃപ്തി ദേശായിക്ക് പ്രത്യേക സുരക്ഷ നൽകി ല്ലെന്ന് പൊലീസ് അറിയിച്ചു മറ്റ് തീർത്ഥാടകർക്ക് നൽകുന്ന തരത്തിൽ സുരക്ഷ തൃപ്തി ദേശായിക്കും നൽകും ഇക്കാരൃ ത്തിൽ അവർക്ക് മറുപടി നൽകില്ലെന്നും പൊലീസ് പറഞ്ഞു

എന്നാൽ സുരക്ഷ നൽകിയില്ലെങ്കിലും ശബരിമലയിൽ എത്തുമെന്ന് ഭൂമാതാ ബ്രിഗേഡ് നേതാവ് തൃപ്തി ദേശായി പറഞ്ഞു തീർത്ഥാടനത്തിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്വം ഗവൺമെന്റിനായിരിക്കുമെന്നും ഏഴ് സ്ത്രീകൾ വരുന്നതുകൊണ്ടാണ് പ്രത്യേക സുരക്ഷ ആവശ്യപ്പെട്ടതെന്നും തൃപ്തി ദേശായി അറിയിച്ചു

കാൽനടയായി എത്തുന്നവരെയാണ് ആദ്യം കടത്തിവിടുന്നത് വാഹനങ്ങൾ ഇതിനുശേഷമെ പമ്പയി ലേക്ക് പ്രവേശിപ്പിക്കൂ കോൺഗ്രസ് വിശ്വാസ സംരക്ഷണ യാത്രകൾ പത്തനംതിട്ട യിൽ ഇന്ന് വൈകീട്ട് സമാപിക്കും വിശ്വാസം സംരക്ഷിക്കുക വർഗീയതയെ തുരത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തിയ കാൽനട പ്രചാരണ വാഹന ജാഥകൾ ജില്ലാ സ്റ്റേഡിയത്തിലാണ് സംഗമിക്കുന്നത് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷനായിരിക്കും ഇന്ധനവിലവർധയുമായി ബന്ധപ്പെട്ട് ഓട്ടോ ടാക്സി തൊഴി യൂണിയനു കളു മായി പ്രി ലാളി മന്തി എ കെ ശശീന്ദ്രൻ ഇന്ന് തിരുവനന്തപുരത്ത് ചർച്ച് നടത്തും

ഇന്ധന സബ്സിഡി നൽകുക പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ്ടിയിൽ ഉൾപ്പെടുത്തുക എന്നീ ആവശൃങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് യാത്രാനിരക്കു കൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പരിഹരിക്കാമെന്ന് തൊഴിൽ ട്രാൻസ്പോർട്ട് മന്ത്രിമാർ ജൂലൈയിൽ നൽകിയ വാഗ്ദാനം ഇതു വരെ നടപ്പാക്കിയില്ലെന്നും നേതാക്കൾ കോട്ടയത്ത് പറഞ്ഞു

ആന്ധ്രയെയാണ് കേരളം തകർത്തത് ജലജ് സക്സേനയെ മാൻ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുത്തു

ഉച്ചക്ക് ശേഷം അബുദാബിയിൽ നിന്ന് എയർഇന്ത്യാ എക്സ്പ്രസ് കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുച്ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു ഉദ്ഘാടന ചടങ്ങിൽ ഒരു ലക്ഷത്തിലേറെ ആളുകൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉദ്ഘാടനം ഉത്സ വമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ

ഉപഗ്രഹത്തിൽ നിന്ന് ആദ്യ സിഗ്നലുകൾ ഹാസനിലെ മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റിയിൽ എത്തിച്ചു തുടങ്ങിയതായി ഐ എസ് ആർ ഒ കേന്ദ്രങ്ങൾ അറിയിച്ചു

കെ ശിവൻ അറിയിച്ചു

ഹയർസെക്കണ്ടറി അധ്യാപകർക്ക് സേവനകാല പരിശീലനം നൽകുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്ത പുരത്ത് മന്ത്രി പ്രൊഫ സി രവീന്ദ്രനാഥ് നിർവഹിക്കും വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനാനുഭവങ്ങൾ ഒരുക്കി ഹയർ സെക്കണ്ടറി വിദ്യാഭ്യാസം ശക്തിപ്പെടുത്താൻ അധ്യാപകരെ സജ്ജമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബിരുദാനന്തര ബിരുദ പഠന സൌകര്യമുളള കോളെജുക ളാണ് പഠന കേന്ദ്രങ്ങളായി തിരഞ്ഞെടുത്തത് നിശ്ചിത കാലയള വിനകം എല്ലാ അധ്യാപകരും കോഴ്സ് പൂർത്തീകരിക്കണം ബന്ധു നിയമന വിവാദത്തിൽ മന്ത്രി കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് കോഴിക്കോട് കലക്ട്രേറ്റിലേക്ക് എം എസ് എഫ് നടത്തിയ മാർച്ചിൽ സംഘർഷം ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ പൊലീസ് ലാത്തിചാർജ് നടത്തു കയും കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തു സംസ്ഥാന ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഇന്നുമുതൽ തത്സമയം ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യും ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ നാലു മണി വരെ കൈരളി കൌമുദി ടെലിവിഷൻ ചാനലു കളിലാണ് ആദൃഘട്ടത്തിൽ നറുക്കെടുപ്പ് തത്സമയ സംപ്രേഷണം ലഭിക്കുക അടുത്തഘട്ടത്തിൽ ജയ്ഹിന്ദ് ജീവൻ ചാനലുകളിലും നറുക്കെടുപ്പ് തത്സമയ സംപ്രേഷണം ലഭ്യമാകും

നേരത്തെ രണ്ട് ദിവസ ത്തേക്കായിരുന്നു കലോത്സവം തീരുമാനിച്ചിരുന്നത്

ചൊവ്വാഴ്ച ആരംഭിച്ച രചനാ മത്സരം ഇന്ന് സമാപിക്കും

അനു വദിച്ച ദുരിതാശ്ചാസ തുക അഡ്മിനിസ്ട്രേറ്റർ ഫാറൂഖ് ഖാൻ മിനി ക്കോയ് ദ്വീപിൽ വിതരണം ചെയ്തു